ഡി എസ് എം

മൂന്നു ദിവസത്തെ സന്ദർശനത്തിന്റായി യു

വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദൂള്ള ബിൻ സെയ്ദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ എത്തി

കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ പഞ്ചസാര മില്ലുകളോട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി

കോപ്പ അമേരിക്ക കപ്പ് ബ്രസീലിന്

തോൽപ്പിച്ചത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക്

ഡി എസ്

മാരുടെ രാജിയെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു

എൽ എ മാർ നൽകിയ രാജിക്കത്തിൽ സ്പീക്കർ നാളെ തീരുമാനമെടുക്കും

എ മാരാണ് ഇതുവരെ രാജി സമർപ്പിച്ചിരിക്കുന്നത്

രാജി വച്ചവരിൽ ആറ് പ്പേർക്കെങ്കിലും മന്ത്രിസ്ഥാനം നൽകി രാജി പിൻവലിപ്പിക്കാനുള്ള അന്ദ്നയ നീക്കങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല് അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഇന്നലെ രാത്രി കോൺഗ്രസ്സ് നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസും ജെ ഡി എസും നിയമസഭാ കക്ഷിയോഗം വിളിച്ചിട്ടുണ്ട്

മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക സഖ്യ ഗൺമെന്റിനെ എങ്ങനെ നിലനിർത്താം എന്നതാവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കുമാരസ്വാമിയെ നീക്കി സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കണമെന്ന കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന്റെ ആവശൃം ജനതാദൾ ദേശീയ അദ്ധ്യക്ഷൻ എച്ച്

ദേവഗൌഡ തള്ളി

ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സെയ്ദ് അൽ നഹ്യാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം നാളെ സന്ദർശിക്കും മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി യു

ഇ വിദേശകാര്യമന്ത്രി ഇന്നലെ രാത്രിയാണ് ന്യൂഡൽഹിയിൽ എത്തിയത് ഇന്ത്യയും യു എ ഇ യും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുന്നത് കൂടാതെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വിവിധ മേഖലകളിലുള്ള സഹകരണ സാധ്യത കണ്ടെത്തുക എന്നതു കൂടിയാണ് സന്ദർശന ലക്ഷ്യം ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ യു എ

എ

ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് യു

ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യ്ത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സൌരാഷ്ട്രയിലെ വെരവ്വൽ പ്രദേശത്തെ ഒരു അദ്ധ്യാപകന്റെ ഹൃദയസ്പർശിയായ കഥിയ്യാണ് ബ്ലോഗിലൂടെ അദ്ദേഹം പങ്കുവച്ചത് മരങ്ങൾ നട്ടുവളർത്തുന്നതിനും ചെടികൾ നടാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സൌരാഷ്ട്രയിലെ അദ്ധ്യാപകൻ നടത്തിയ അതുല്യ പരീക്ഷണത്തെ ശ്രീ

വീടുകളിൽ പാത്രങ്ങൾ കഴുകിയശേഷം അവശേഷിക്കുന്ന ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പരീക്ഷണങ്ങളേയും പൊടിക്കൈകളേയും കുറിച്ചുള്ള വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു

എൽ എ യുമായ സബ്യസാച്ചി ദത്തയ്ക്കെതിരെ അച്ചടക്ക നടപടിക്ക് ആലോചിക്കുന്നതായി തൃണമൂൽ കോൺഗ്രസ്സ്

ന്യൂഡൽഹിയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷിലും ഒമ്പത് ഇന്ത്യൻ ഭാഷകളിലും ഇന്ത്യയുടെ ജ്ഞാനം വിളിച്ചോതുന്ന വിവേക ദീപിനി എന്ന പുസ്തകമാണ് ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്തത്

സംസ്ഥാന ഗവൺമെന്റ് ഇതിനായി ഏകജാലക സംവിധാനം സജ്ജീകരിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു കർഷകർ യൂറോപ്പിലേതുപോലെ ബീറ്റ്റൂട്ട് കൃഷിയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് എൻ സി പി നേതാവ് ശരദ് പവാർ അഭിപ്രായപ്പെട്ടു

എട്ട് പേരേയും അവരുടെ ബോട്ടുകളേയും സുരക്ഷിതമായി പാരദീപ് തുറമുഖത്തെത്തിച്ചതായി പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൊൽക്കത്തയിൽ അറിയിച്ചു

ഹിമദാസിന്റെ രണ്ടാം അന്താരാഷ്ട്ര സ്വർണ്ണനേട്ടമാണ് ഇത്

കെ വിസ്മയ വെള്ളി നേടി

ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്

നാളെ വൈകിട്ട് മൂന്നു മുതൽ ഓൾഡ് ടെഫോൾഡിലാണ് മത്സരം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ സെമി വ്യാഴാഴ്ച നടക്കും

ഹോളണ്ട് ആദ്യമായിട്ടൂണ് ഫ്രെനൽ കളിച്ചത്

ഇറാൻ കരുതിയിരിക്കണമെന്നാണ് ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാൻ കൂടുതൽ തീവ്രമായ ഉപരോധം ക്ഷണിച്ചുവരുത്തുകയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക് പോംപിയോ പ്രതികരിച്ചു

വൈദ്യുതി തടസ്സം കാർഷിക വായ്പ എന്നീ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും

എൻ എ പരിശോധനകളുടെ ദുരുപയോഗം തടയുന്നതിന് വൃവസ്ഥ ചെയ്യുന്ന ബിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ എന്നിവയും ലോക്സഭ പരിഗണിക്കും

ഇരു ഡേറ്റാ ബ്ബേസു്കളും ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇതിന് പ്രായോഗിക ബൂഭ്യിമുട്ടില്ല

ഇന്ന് നടക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഫിഫ്റ്റീൻ പോയിന്റ് പ്രോഗ്രാമിന്റെ ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുക്കും